സി സി പ്രസിഡന്റും

ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ അന്നുറാണി വനിതാ ജാവലിൻ ത്രോ ഫൈനൽ റൌണ്ടിൽ കടന്നു ള അ ശ്ര ശ്ര ശ്ര ശ്ര ശ്ര അ വയനാട് ദേശീയപാതയിലെ രാത്രി യാത്രാ നിരോധന പ്രശ്ന ത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വനം പരി സ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കറുമായി ഇന്ന് ഡൽഹി യിൽ കൂടിക്കാഴ്ച നടത്തും നേരത്തെ പ്രകാശ് ജാവ്ദേ ക്കർക്ക് അയച്ച കത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടി ക്കാഴ്ചയും ചർച്ചയും വയനാട്ടിലെ സർവകക്ഷി സംഘവും ഇന്ന് ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രിമാരെ കാണും വയനാട് എം പി രാഹുൽഗാന്ധി മുഖ്യമന്ത്രി യുമായി ഡൽഹിയിൽ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യും യാത്രാ നിരോധനത്തിനെതിരെ ബത്തേരിയിൽ യുവജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന നിരാഹാര സ്മരം ഏഴാം ദിവ സത്തിലേക്ക് കടന്നു സമരത്തിന് ഐകൃദാർഢൃവുമായി രാഹുൽ ഗാന്ധി വ്യാഴാഴ്ച ബ്ത്തേരിയിലെ സമരപ്പന്ത ലിൽ എത്തി ഉപവാസത്തിൽ പങ്കുചേരും യുവജന സംഘടനകളുടെ നിരാഹാര സമരത്തിന് പിന്തുണ യുമായി കേരള ക്രിക്കറ്റ് താരങ്ങൾ സമരപ്പന്തലിലെത്തി മുൻ ഇന്ത്യൻ താരം ടിനു യോഹന്നാൻ ഐ

എൽ താരം പി പ്രശാന്ത് കോച്ച് പി ബാലചന്ദ്രൻ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി നാസർ മച്ചാൻ തുടങ്ങി യവർ സമരത്തിന് ഐകൃദാർഢൃം പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപ തെരഞ്ഞെടുപ്പിന് സമർപ്പിച്ച നാമനിർദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് അഞ്ച് മണ്ഡലങ്ങളിൽ മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്ക് പുറമെ കക്ഷി രഹി തരും ഡമ്മി സ്ഥാനാർത്ഥികളും ഇന്നലെ പത്രിക നൽകി വ്യാഴാഴ്ച വരെ പത്രിക പിൻവലിക്കാം വെള്ളിയാഴ്ച സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിക്കും

വട്ടിയൂർക്കാവിൽ പത്തും കോന്നിയിൽ ഏഴും പേരാണ് പത്രിക നൽകിയത് പാലാ ഉപതെരഞ്ഞെടുപ്പ് ഫലം അഞ്ച് മണ്ഡല്ങ്ങളിലെ ഉപ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ അരൂരിൽ പറഞ്ഞു

ഡി എഫ് നിയോജകമണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മുഖ്യമന്ത്രി

ഡി എഫിനെ എല്ലാ ജന വിഭാഗങ്ങളും കൈവിട്ടുവെന്നും ബി ജെ

ഡി എഫ് ആണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ സിബിഐ അന്വേഷണം നിർദേശിച്ച് ഹൈക്കോടതി നടപടിയുടെ സാഹചര്യ ത്തിൽ മുഖ്യമന്ത്രി ഉടൻ സ്ഥാനം ഒഴിയണമെന്ന് പ്രതി പക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ആവശ്യപ്പെട്ടു പ്രതി കളെ രക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ശ്രമം ഹൈക്കോടതി വിധിയിലൂടെ തകരുകയായിരുന്നു വെന്ന് അവർ തിരുവനന്തപുരത്ത് വിലയിരുത്തി പൊലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് കിട്ടിയ കനത്ത അടിയാണ് ഹൈക്കോടതി കേസ് സിബിഐക്ക് വിട്ട തീരുമാനമെന്ന് ബി ജെ

എസ് ശ്രീധരൻപിള്ള അഭിപ്രായപ്പെട്ടു

മുമ്പേ സഞ്ചരിച്ച് വരുംതലമു റകൾക്ക് പാതയൊരുക്കിയ മുതിർന്ന പൌരൻമാർക്ക് ആദരം നൽകാനും അവർക്ക് സന്തുഷ്ട ജീവിതം പ്രദാനം ചെയ്യാനും ലക്ഷ്യമിട്ട് നിരവധി പരിപാടികൾ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും കോഴിക്കോട്ട് ലോക വയോജന ദിനാഘോഷവും വയോ ജന ഉത്സവവും ടാഗോർ സെന്റിനറി ഹാളിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും

കൊല്ലത്ത് ദിനാചരണം മന്ത്രി ജെ

വിളംബര ഘോഷയാത്രയും സംഘടിപ്പി ച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഗാന്ധിജയന്തി വാരാചരണത്തിന് നാളെ തുട ക്കമാവും രാവിലെ തിരുവനന്തപുരം ഗാന്ധിപാർക്കിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വാരാചരണത്തിന്റെ സംസ്ഥാനതല പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ ദിനാചരണത്തിന് തുടക്കം കുറിക്കും

സമാപന സമ്മേളനം വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്യും മലപ്പുറം ഇടുക്കി കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയുടെ സാധ്യത പുരിഗണിച്ച് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ തൃശൂർ മലപ്പുറം കോഴി ക്കോട് വയനാട് ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ല കളിലും യെല്ലോ അലർട്ടുണ്ട് മിക്കയിടങ്ങളിലും ശക്ത മായ മിന്നലിനും സാധ്യതയുണ്ട് റബ്ബർ മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണുമെന്ന് മന്ത്രി ഇ പി ്ജയരാജൻ അറിയിച്ചു കോട്ടയം കേന്ദ്രീക രിച്ച് റബ്ബർ അധിഷ്ഠിത വൃവസായം തുടങ്ങാൻ നടപടി ആരംഭിച്ചു കഴിഞ്ഞു ഇതിന് തുടർച്ചയായാണ് കണ്ണൂർ കാസർകോട് ജില്ലകളിലെ കർഷകർക്കായി കണ്ണൂർ മല പ്പട്ടത്ത് റബ്ബർ പ്രൊഡക്റ്റ്സ് കമ്പനി തുടങ്ങുന്നതെന്നും മന്ത്രി പറഞ്ഞു പാപ്പിനിശ്ശേരിയിൽ കമ്പനിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇ പി ജയരാ ജൻ

ജസ്റ്റിസ് അരുൺമിശ്രയുടെ നേതൃത്വത്തിൽ മൂന്നംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്

ഇടുക്കി മുരിക്കാശ്ശേരിയിൽ സമാപിച്ചു ദേശീയ ക്ലാസിക് പവർ ലിഫ്റ്റിങ് ചാംപ്യൻഷിപ്പിൽ കേരളം ജേതാക്കളായി

ദോഹ ലോക അത്ലറ്റിക് ചാമ്പൃൻഷിപ്പിൽ ഇന്തൃയുടെ അന്നു റാണി വനിതകളുടെ ജാവലിൻ ത്രോ ഫൈനൽ റൌണ്ടിൽ കടന്നു ദേശീയ റെക്കോർഡ് തിരുത്തിയാണ് അന്നുറാണി ഫൈനലിൽ സ്ഥാനം നേടിയത് ചാമ്പ്യൻഷിപ്പിന്റെ അഞ്ചാം ദിനമായ ഇന് നാല് ഫൈനലു കൾ നടക്കും

പി രാമകൃ ഷ്ണൻ വിതരണം ചെയ്യും

സഞ്ചാര സാഹിത്യം വെറും ഡയറിക്കുറിപ്പില്ല എന്ന് മലയാ ളിക്ക് മനസിലാക്കിക്കൊടുത്ത മഹാനാണ് എസ് കെ പൊറ്റക്കാടെന്ന് മന്ത്രി എ കെ ബാലൻ അഭിപ്രായപ്പെട്ടു കോഴിക്കോട് എസ് കെ പൊറ്റക്കാട് സാംസ്കാരിക നില യത്തിൽ നിർമിച്ച മിനി എ സി കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ദേശീയ സന്നദ്ധ രക്തദാന ദിനത്തോടനുബന്ധിച്ച് കൊല്ലത്ത് ഇന്ന് ബോധവത്കരണ റാലിയും പൊതു സമ്മേളനവും സെമിനാറും സംഘടിപ്പിക്കും ബീച്ചിൽ നിന്ന് തുടങ്ങുന്ന റാലി ജില്ലാ ആശുപത്രിയിവ് സമാപിക്കും രാവിലെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ബോധവത്കരണ പ്രദർശനം മേയർ വി രാജേന്ദ്രബാബു ഉദ്ഘാടനം ചെയ്യും പെൺകുട്ടികളെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിപ്പിക്കുന്ന പ്രവണത സംസ്ഥാനത്ത് വർധിച്ച് വരികയാണെന്ന് വനിതാ കമ്മീഷൻ അംഗം ഇ

ഈ പ്രവണതക്കെതിരെ വ്യാപകമായ ബോധവ ത്കരണം ആവശ്യമാണെന്ന് വനിതാ കമ്മീഷൻ അദാല ത്തിൽ അവർ അഭിപ്രായപ്പെട്ടു തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ സസ്യഭക്ഷണശാല നില നിർത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിർദേശിച്ചു മൂന്ന് മാസത്തേക്ക് കൂടി ഭക്ഷണശാലയ്ക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തെ മൂല്യങ്ങളെ തകർക്കുകയും വംശീയ വിവേചനത്തിനും പൌരാവകാശ ധംസന ത്തിനും കൂട്ടു നിൽക്കുകയാണെന്നും ജമാഅത്തെ ഇസ്ലാമി ദേശീയ സെക്രട്ടറി മലിക് മുഖ്ത്തസിം ഖാൻ കുറ്റപ്പെടുത്തി

ഫാസിസ്റ്റ് ഭീകര വാഴ്ചക്കെതിരെ നടത്തിയ ബഹു ജന സംഘമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേ ഹം ലൈസൻസെടുക്കാൻ പ്രായമാകാത്ത കൌമാരക്കാരൻ മൂന്ന് പേരുമായി ഇരുചക്രവാഹനം ഓടിക്കുകയും മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിക്കുകയും ചെയ്ത സംഭവ ത്തിൽ കേന്ദ്ര മോട്ടോർ വാഹന ഭേദഗതി നിയമ പ്രകാരം കോഴിക്കോട് പൊലീസ് കേസെടുത്തു

വിദ്യാർഥിക്കെ തിരായ കേസ് ജുവനൈൽ കോടതിയിൽ തുടർ നടപ ടിക്ക് സമർപ്പിക്കുമെന്ന് പൊലീസ് അറിയിച്ചു സമ്പുഷ്ട കേരളം പദ്ധതിയുടെ ഭാഗമായി ജില്ലകളിൽ പര്യ ടനം നടത്തുന്ന പോഷൺ എക്സ്പ്ര്യസ് കോഴിക്കോടെ ത്തി

ഇന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പോഷൺ എക്സ്പ്രസ് വാഹനം പര്യടനം നടത്തും ഹരിത കേരളത്തിന്റെ വഴികാട്ടാൻ വാഗമൺ പദ്ധതിയിൽ വാഗമണിലേക്കെത്തുന്ന നാല് വഴികളും ഹരിത ഇടനാ ഴികളായി ്രമാറും ഇന്നലെ ചേർന്ന ജില്ലാതല ഹരിത ടൂറിസം യോഗത്തിൽ പദ്ധതിക്ക് അംഗീകാരം നൽകി ഉപ്പുതറ ഏലപ്പാറ തീക്കോയി പുള്ളിക്കാനം എന്നിവിട ങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകളും തുറക്കും വഴിക്ക ടവ് വനം വകുപ്പ് ചെക്ക് പോസ്റ്റ് ഹരിത ചെക്ക് പോസ്റ്റായി മാറ്റുകയും ചെയ്യും വിദേശ സർവകലാശാല പ്രവേശനത്തിന്റെ മറവിൽ നടക്കുന്ന തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ വിദ്യാർഥികളും രക്ഷിതാ ക്കളും ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്താ ജെറോം ആവശ്യ പ്പെട്ടു പല വിദേശ സർവകലാശാലയുടെയും പേരിൽ വിദ്യാർഥികളെ കബളിപ്പിക്കാൻ ശ്രമം നടക്കുന്നത് ശ്രദ്ധ യിൽപെട്ടിട്ടുണ്ടെന്ന് കമ്മീഷൻ അദാലത്തിൽ അറിയിച്ചു കണ്ണൂർ ആകാശവാണി നിലയത്തിന്റെ നാട്ടകത്തിന് ദേശീയ പുരസ്കാരം